ഉറ്റുനോക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

കേരളത്തിലെ ഇളവുകൾ ഇന്ന് പ്രഖ്യാപിക്കും

തെക്കു പടിഞ്ഞാറൻ കാലവർഷം കേരളത്തിൽ എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്

കൊറോണ പ്രതിരോധത്തിന് ഇന്ത്യൻ ഡോക്ടർമാരുടെയും ആരോഗ്യപ്രവർത്തകരുടെയും സേവനം നിരൂവധി രാജ്യങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ് ആരോഗ്യപ്പ്പ്പർത്തകരുടെ ആത്മാർത്ഥമായ സേവനത്തിലൂടെ ക്യോവിഡ് മഹാമാരിയെ തോൽപ്പിക്കാൻ നമുക്ക് ആകും

യോഗയും ആയുർവേദവും ഇപ്പോൾ ല്ലോകത്തെ നിരവധി രാജ്യങ്ങൾ പിന്തുടരുന്നു

കോവിഡ് നിയന്ത്രിക്കുന്നതിൽ കർണ്ണാടക സർക്കാർ സ്വീകരിച്ച മാർഗ്ഗങ്ങളെ പ്രധാനമന്ത്രി ശ്ലാഘിച്ചു കോവിഡ് പോലുള്ള മഹാമാരികളെ ചെറുക്കാൻ രാജ്യത്തെ സ്വയം പര്യാപ്തമാക്കാനുള്ള ശ്രമങ്ങളുമായാണ് സർവകലാശാല മുന്നോട്ട് പോകുന്നതെന്ന് കർണ്ണാടക മെഡിക്കൽ വിദ്യാഭ്യാസമന്ത്രി ഡോ

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ജൂൺ എട്ട് മുതൽ ആരാധനാലയങ്ങൾ ഹോട്ടൽ റസ്റ്റോറന്റ് ഷോപ്പിംഗ് മാളുകൾ എന്നിവ തുറക്കും കർഫ്യൂ രാത്രി ഒൻപത് മുതൽ രാവിലെ അഞ്ചു വരെ മാത്രം സംസ്ഥാനങ്ങൾക്കുള്ളിലും അന്തർ സംസ്ഥാന യാത്രകളും അനുവദിച്ചിട്ടുണ്ട് അതേസമയം രാജ്യാന്തര വിമാനസർവ്വീസ് തീയേറ്ററുകൾ പൊതുസമ്മേളനങ്ങൾ എന്നിവയ്ക്കുള്ള നിരോധനങ്ങൾ ഈ ഘട്ടത്തിലും തുടരും നിരവധി സംസ്ഥാനങ്ങൾ ഇതിനോടകം തന്നെ അഞ്ചാംഘട്ട ലോക്ഡൌണിന്റെ ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളത്തിന്റെ ഇളവുകൾ സംബന്ധിച്ച് ഇന്ന് തീരുമാനമുണ്ടാകും

എട്ട് വിമാനങ്ങൾ യു

ഇ യിൽ നിന്നാണ് ദുബായ് അബുദാബി ബഹ്റിൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിമാനങ്ങൾ കൊച്ചി അന്താരാഷ്ട്രവിമാനത്താവളത്തിൽ എത്തും

തിരുവനന്തപുരത്ത് ദുബായിൽ നിന്നും കുവൈറ്റിൽ നിന്നും വിമാനങ്ങൾ എത്തും ദുബായിൽ നിന്നും മസ്ക്കറ്റിൽ നിന്നുമുള്ള വിമാനങ്ങളാണ് കോഴിക്കോട് എത്തുന്നത്

രാവിലെ കൊളംബോയിൽ എത്തിയ കപ്പൽ ഇന്ന് വൈകിട്ടാണ് അവിടെ നിന്നും യാത്ര തിരിക്കുന്നത്

സി ട്രെയിൻ സർവ്വീസുകൾക്കും പുറമെയാണ് ഇത് എ സി നോൺ എ സി

വിദ്യാലയങ്ങളിൽ ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചു

യു ട്യൂബിലൂടെയും സമഗ്ര പോർട്ടൽ വഴിയും ക്ലാസ്സുകൾ ഒരുക്കിയിട്ടുണ്ട്

ബി എസ്

ടെലിവിഷൻ ഇന്റർനെറ്റ് സൌകര്യം ഇല്ലാത്ത വിദ്യാർത്ഥികൾക്ക് വെർചൽ പഠന സൌകര്യം ഉറപ്പാക്കുമെന്ന് ഗവൺമെന്റ് വ്യക്തമാക്കിയിട്ടുണ്ട് ക്ലാസ്സ് ടീച്ചർ കണ്ടെത്തുന്ന കുട്ടികൾക്ക് സ്കൂൾ മേധാവിയാണ് ബദൽ സൌകര്യം ഒരുക്കുന്നത് ന്യൂസ് ഡെസ്ക് ആകാശവാണി

ആഗോള ഭക്ഷ്യവസ്തുവെന്ന നിലയിൽ പാലിന്റെ പ്ലാഗ്ഗ്ഗന്യം മനസ്സിലാക്കാനുള്ള അവസരമാണിതെന്ന് ഉപരാഷ്ട്രപതി ട്ടിറ്റ്മിൽ കുറിച്ചു

ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയിൽ ക്ഷീരമേഖലയ്ക്ക് വലിയ സ്ഥാനമാണുള്ളത് അമുൽ പോലെയുള്ള പ്രസ്ഥാണ്ട്ങ്ങൾ ക്ഷീരകർഷകർക്ക് വലിയ ആത്മവിശ്വാസമാണ് പ്രക്ടർ ്ന്നതെന്ന് ശ്രീ

ആദ്യ പ്രഖ്യാപനത്തിൽ ഈ വർഷത്തെ മൺസൂൺ സാധാരണ നിലയിലായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു

വൃക്കരോഗത്തെ തുടർന്ന് മുംബൈയിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം

സഹോദരൻ സാജിദുമായി ചേർന്ന കൂട്ടുള്കുട്ടിൽ നിരവധി സിനിമകളിൽ സംഗീത സംവിധാനം നിർവ്വഹിച്ചിട്ടുണ്ട് വാണ്ടഡ് ഏക്താ ടൈഗർ ദബാങ് തുട്ടങ്ങിയവ വാജിദ് ഖാൻ സംഗീതം നൽകിയ ചിത്രങ്ങളാണ്

കിസാൻ ക്രെഡിറ്റ് കാർഡിലൂടെയുള്ള വായ്പയ്ക്കായി രണ്ട് ലക്ഷം കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്

എം